സ്വയംപര്യാപ്തതയ്ക്കും തൊഴിലവസരങ്ങൾക്കും വഴിതെളിക്കുമെന്ന് പെട്രോളിയം മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ

ബുറേവി ചുഴലിക്കാറ്റിന്റെ പശ്ചാത്തലത്തിൽ കേരള തമിഴ്നാട് തീരങ്ങളിൽ കനത്ത ജാഗ്രത

ജി കേന്ദ്രങ്ങൾ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം

പ്രകൃതി വാതക ഉപഭോഗം കൂട്ടുന്നത് ഫോസിൽ ഇന്ധനങ്ങളെ ആശ്രയിക്കുന്നതിലും ഇവയുടെ ഇറക്കുമതി കുറയ്ക്കുന്നതിലും സഹായകരമാകുമെന്ന് ശ്രീ പ്രധാൻ വൃക്തമാക്കി

കർഷകരുടെ താൽപ്പർ്യങ്ങൾ സംരക്ഷിക്കാനും അവരുടെ ക്ഷേമത്തിന് തുറന്ന ചർച്ചയ്ക്കും കേന്ദ്രം പ്രതിജ്ഞാബദ്ധമാണെന്ന് കൃഷിമന്ത്രി നരേന്ദ്ര സിങ് ്തോമർ ടിറ്ററിൽ കുറിച്ചു പ്രക്ഷോഭം അവസാനിപ്പിച്ച് ചർച്ചകൾക്കായി മുന്നോട്ടു വരണമെന്നും കൃഷിമന്ത്രി കർഷകരോട് അഭ്യർത്ഥിച്ചു ഇന്നലെ ഡൽഹിയിൽ ചേർന്ന ചർച്ചയിൽ തീരുമാനമാകാത്തിനെ തുടർന്നാണ് വീണ്ടും ചർച്ച നടത്തുന്നത് ശ്രീ നരേന്ദ്ര സിങ് തോമർ വാണിജ്യമന്ത്രി പിയൂഷ് ഗോയൽ സഹമന്ത്രി സോം പ്രകാശ് എന്നിവരാണ് സമരം നടത്തുന്ന കർഷകരുടെ പ്രതിനിധികളുമായി ചർച്ച നടത്തിയത്

അതോടൊപ്പം രാജ്യത്തെ പ്രതിദിന കോവിഡ് മുക്തി നിരക്കും വർധിച്ചു വരികയാണ്

ലോകാരോഗൃസംഘടന നിഷ്കർഷിച്ചതിലും അഞ്ചിരട്ടി പ്രതിദിന പരിശോധനകളാണ് രാജ്യത്ത് നടക്കുന്നത്

ജെ പി എം

മണാലിയിൽ കഴിഞ്ഞിരുന്ന താരം മുംബൈയിലേക്ക് മടങ്ങാൻ ഒരുങ്ങുന്നതിനിടെയാണ് രോഗം സ്ഥിരീകരിച്ചത് താനുമായി സമ്പർക്കത്തിൽ വന്ന എല്ലാവരും കോവിഡ് പരിശോധന നടത്തണമെന്ന് താരം സാമൂഹ്യ മാധ്യമത്തിലൂടെ അഭ്യർഥിച്ചു

ലോകത്തിലെ മറ്റു രാഷ്ട്രങ്ങളേക്കാൾ മികച്ച രീതിയിലാണ് ഇന്ത്യ കോവിഡിനെതിരെ പോരാടിയത് ദശലക്ഷം പേരിലെ രോഗികളുടെ എണ്ണവും മരണവും മറ്റു രാജ്യങ്ങളിലേക്കാൾ ഇന്ത്യയിൽ കുറവാണ്

ഇത് സംബന്ധിച്ച മാധ്യമ വാർത്തകളോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം പുതിയ വിദ്യാഭ്യാസ നയം വിദ്യാഭ്യാസ മേഖലയിലെ സംവരണത്തിൽ കുറവ് വരുത്തുന്നതാണെന്ന് ചില രാഷ്ട്രീയ നേതാക്കളെഴുതിയ ലേഖനങ്ങളിൽ സംശയം പ്രകടിപ്പിച്ചിരുന്നതായി അദ്ദേഹം പറഞ്ഞു പുതിയ നയം നിലവിൽ വന്നതിനു ശേഷം നീറ്റ് യുജിസി നെറ്റ് ഇഗ്നോ ജെഇഇ തുടങ്ങിയ വിവിധ പ്രവേശന പരീക്ഷകൾ ് നടത്തി നിരവധി വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഒട്ടനേകം നിയമനങ്ങളും നടത്തിയെങ്കിലും സവംരണ വൃവസ്ഥ ലംഘിച്ചതിന് എതിരെ ഒരു പരാതി പോലും സർക്കാരിന് ലഭിച്ചിട്ടില്ലെന്നും മന്ത്രി പറഞ്ഞു

കോവിഡ് വ്യാപനവും അനുബന്ധ ലോക്ക്ഡൌണും ദുരിതത്തിലാക്കിയ രാജ്യത്തെ പാവപ്പെട്ടവരുടെ ജീവിതം പുനഃസ്ഥാപിക്കുന്നതിനാണ് കേന്ദ്രം പരിഗണന നൽകിയത്

തെക്ക് കിഴക്കൻ ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട ബുറേവി ചുഴലിക്കാറ്റ് മറ്റന്നാളോടെ തിരുവനന്തപുരം ജില്ലയിലൂടെ കടന്നു പോകാനിടയുണ്ടെന്നു മുന്നറിയിപ്പിൽ വ്യക്തമാക്കുന്നു ഇനിയൊരു അറിയിപ്പുണ്ടാകുന്നത് വരെ കേരള തീരത്ത് നിന്ന് കടലിൽ പോകുന്നതിനു പൂർണ്ണനിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട് മറ്റന്നാൾവരെ കേരളത്തിൽ പലയിടത്തും അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് അറിയിച്ചു നാളെ തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ ജില്ലകളിൽ അതിതീവ്ര മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധൃതയുണ്ട്

ശുദ്ധമായ വായുവും ജലവും ആണ് മനുഷ്യരാശിക്ക് ലഭ്യമായ ഏറ്റവും വിലയേറിയ വിഭവങ്ങൾ എന്നും സുസ്ഥിരവും പ്രകൃതി സൌഹൃദവും ആയ ഒരു വളർച്ചയ്ക്ക് മോദി സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്നും കേന്ദ്ര മന്ത്രി ഹർഷവർദ്ധൻ അഭിപ്രായപ്പെട്ടു

രണ്ടാം മത്സരത്തിൽ പരിക്കേറ്റ ഡേവിഡ് വാർണർ പോറ്റ് കമിൻസ് എന്നിവർ ഇല്ലാതെയാണ് ഇന്ന് ഓസ്ട്രേട്ടിയിൽ മത്സരത്തിനിറങ്ങിയത് ഇന്ത്യക്കുവേണ്ടി ബൌളർ ടി നടിരാജൻ ഏകദിനത്തിൽ അരങ്ങേറ്റം കുറിച്ചു

സി ജംഷഡ്പൂരിനെ നേരിടും ഗോവയിൽ രാത്രി ഏഴരയ്ക്കാണ് മത്സരം ഇന്നലെ നടന്ന മത്സരത്തിൽ മുംബൈ സിറ്റി എഫ് സി എതിരില്ലാത്ത മൂന്ന് ഗോളിന് ഈസ്റ്റ് ബംഗാളിനെ തോൽപ്പിച്ചിരുന്നു